പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഓൺലൈനായി നിർവ്വഹിക്കും

ടി നഷ്ടപരിഹാര ഇനത്തിൽ പ്ലത്ത് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായ്ക്ക്രിന്ദ സർക്കാർ ആറായിരം കോടി രൂപ വിതരണം പ്ലെയ്തു

രാജ്യത്ത് കോവിഡ് പ്ര്ച്തിരോധത്തിൽ അടുത്ത മൂന്ന് മാസം നിർണായകമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി വരും മാസങ്ങളിൽ ലോകത്ത് കോവിഡ് സ്ഥിതി രൂക്ഷമാകുമെന്ന് ലോകാരോഗൃ സംഘടന

എല്ലിൽ ചെന്നൈയെ തോല്പിച്ച് മുംബൈ ഇന്ന് രണ്ട് മത്സരങ്ങൾ

കർഷകർക്കുള്ള കിസാൻ സൂര്യോദയ പദ്ധതി യു എൻ മെഹ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആന്റ് റിസർച്ച് സെന്ററിലെ കുട്ടികൾക്കുള്ള ഹൃദയാശുപത്രി അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ ടെലി കാർഡിയോളജി മൊബൈൽ ആപ്തിക്കേഷൻ എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഗിർനാറിൽ റോപ്വേയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

ഇ

നിതി ആയോഗും കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാത്രക് മന്ത്രാലയവും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വീഡിയോട്ടുകോൺഫറൻസിംഗിലൂടെയാണ് ശ്രീ നരേന്ദ്ര മോദി പങ്കെടു്ക്കുക

ഇ

എച്ച് എസ് മാർക്കിറ്റ് ആതിഥ്യമരുളുന്ന ഇന്ത്യ എനർജി ഫോറം സെറവീക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ആന്ധ്ര പ്രദേശ് അസം ബിഹാർ ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണ്ണാടക മധ്യ പ്രദേശ് മഹാരാഷ്ട്ര മേഘാലയ ഒഡീഷ തമിഴ്നാട് ത്രിപുര ഉത്തർ പ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്

വിശദാംശങ്ങളുമായി ലിഖിത

ഉള്ളി വില പിടിച്ചു നിർത്താനുള്ള നടപടികളുടെ ഭാഗമായാണിത്

വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ളി വില കുറഞ്ഞിട്ടുണ്ടെന്ന് കേന്ദ്ര ഉപഭോക്തൃകാരൃ സെക്രട്ടറി ലീലാ നന്ദൻ അറിയിച്ചു മഹാരാഷ്ട്ര കർണ്ണാടക ആന്ധ്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ കനത്ത മഴയും പ്രളയവുമാണ് രാജ്യത്ത് ഉള്ളി വില വർദ്ധിക്കാനിടയാക്കിയത് കാലാവസ്ഥ പൂർവ്വസ്ഥിതിയിലെത്തുന്ന തോടെ ഉല്പാദനം പഴയ സ്ഥിതിയിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു

വിവിധ ഉള്ളി ഉല്പാദക രാജ്യങ്ങളിലെ വ്യാപാരികളുമായി ഇന്ത്യൻ ഹൈകമ്മീഷണർമാർ കൂടുതൽ ഇറക്കുമതിക്കായി ചർച്ച നടത്തിവരികയാണ് കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ അവശ്യസാധന നിയമ പ്രകാരം കർശന നടപടികളാണ് സ്വീകരിച്ചുവരുന്നതെന്നും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രാലയ സെക്രട്ടറി വൃക്തമാക്കി

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കുൾ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തുണ്ട്

എസ്

യോഗ്യത നേടിയവർക്ക് മെയിൻ പരീക്ഷയ്ക്കുള്ള വിശദമായ അപേക്ഷാ ഫോം പൂരിപ്പിക്കാവുന്നതാണ്

സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും

സ്ത്രീകളെ ആദ്യിക്കുക എന്ന ഇന്ത്യൻ പാരമ്പരൃം വിളിച്ചോതുന്ന ഉത്സ്വ വേളയിൽ മാതൃശക്തിയെ ബഹുമാനിക്കാനും ശാക്തൂീക്കർക്കാനും ഉറച്ചു തീരുമാനമെടുക്കണ മെന്ന് രാഷ്ട്രപതി പറഞ്ഞും ക്ഷേത്രങ്ങളിലും വീടുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി പുസ്തകങ്ങളടക്കമുള്ള പഠനോപകരണങ്ങൾ ഇന്നലെ വൈകിട്ട് പൂജ വച്ചു

കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് രാജ്യത്തിന് കോവിഡ് വ്യാപനം വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിച്ചു

കോവിഡ് വ്യാപനത്തിന്റെ നിർണ്ണായക ഘട്ടത്തിലാണ് നാമെന്നും അടുത്ത കുറച്ച് മാസങ്ങൾ അതികഠിനമായിരിക്കുമെന്നും ലോകാരോഗൃ സംഘടനാ ഡയറക്ടർ ജനറ്റൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് പറഞ്ഞു

എൻ ചാർട്ടർ പ്രാബല്യത്തിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ് ഐക്യരാഷ്ട്ര സഭാ ദിനം ആചരിക്കുന്നത്

പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മൂന്നു ദിവസമായി നടന്ന എഫ്

ടി

ഭീകരതയ്ക്കെതിരായ നടപടികൾ പൂർണമായി നടപ്പാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ലെന്ന് എഫ്

എഫ് വിലയിരുത്തി